ഗ്ലോബൽ ഗോൾ കീപ്പർ അവാർഡ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി

എല്ലാവ രുടെയും ക്ഷേമവും അധസ്ഥിതരുടെ മോചനവും സുസ്ഥിരമായ പരിസ്ഥിതിയും മഹാത്മജിയുടെ സുപ്രധാന ലക്ഷ്യങ്ങളായിരുന്നു വെന്ന് അദ്ദേഹം അനുസ്മരിച്ചു ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര സംഘടനാ ആസ്ഥാനത്ത് ഇന്ത്യ സംഘടിപ്പിച്ച ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി

പ്രത്യേക ഗാന്ധിജി അനുസ്മരണ സ്റ്റാമ്പും പരിപാടിയുടെ ഭാഗമായി പ്രകാശനം ചെയ്തു

ഈ രാജ്യങ്ങളുടെ പുരോഗതി യിൽ ഇന്ത്യയ്ക്കുള്ള പ്രതിബദ്ധത കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയതായി വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു

പാക്കിസ്ഥാനുമായി ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിലും ഭീകരത യുടെ വക്താക്കളോട് ചർച്ച നടത്തുന്നതിൽ ചില പ്രശ്നങ്ങളു ണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു ജമ്മുകശ്മീർ വിഷയത്തിൽ പാക്കിസ്ഥാൻ ഭീകര പ്രവർത്തനത്തിന്റെ കുത്തക ഏറ്റെടുത്തിരിക്കുകയാണെന്നും അദ്ദേഹം ഏഷ്യാ സാംസ്കാരിക സൊസൈറ്റി ന്യൂയോർക്കിൽ സംഘടപ്പിച്ച ചടങ്ങിൽ പറഞ്ഞു

ഇതിന്റെ പേരിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ പാക്കിസ്ഥാൻ പുറത്താക്കുക പോലും ചെയ്തെന്ന് ജയശങ്കർ കുറ്റ പ്പെടുത്തി ന കൊച്ചി മരടിലെ അനധികൃത ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കാനും അവരിൽ നിന്ന് നഷ്ട പരിഹാരം ഈടാക്കി പുനരധിവാസം നടപ്പിലാക്കാനും സംസ്ഥാന മന്ത്രി സഭായോഗം തീരുമാനിച്ചു മൂന്നു മാസത്തിനകം ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കുന്നതിന് കർമ്മ പദ്ധതി ചീഫ് സെക്രട്ടറി ടോം ജോസ് യോഗത്തിന്റെ പരിഗണനയ്ക്കു വെച്ചു ഫ്ളാറ്റുടമകളുടെ പുനരധിവാസ നടപടികൾ ഗവൺമെന്റിന്റെ പരിഗണനയിലാണ് പൊളിക്കണമെന്ന സുപ്രീകോടതി നിർദേശം നടപ്പിലാക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് താത്പര്യമില്ലെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി നിരീക്ഷിച്ചിരുന്നു അതേസമയം ഫ്ളാറ്റുടമകൾ ഇന്നു വൈകീട്ട് യോഗം ചേരുന്നുണ്ട് കൊച്ചി മരടിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ അടുത്തമാസം നാല് മുതൽ പൊളിച്ചു തുടങ്ങാൻ തീരുമാനമായി നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിന് ഫോർട്ട് കൊച്ചി സബ് കലക്ടർ സ്നേഹിൽ കുമാർ സിങ്ങ് ചുമതലയേറ്റു

ബി യ്ക്കും വാട്ടർ അതോറിറ്റിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഫ്ളാറ്റു ടമകളുടെ ഹർജികൾ കോടതി തള്ളിയ സാഹചര്യ ത്തിലാണ് നടപടികൾ കേരള തമിഴ്നാട് അന്തർസംസ്ഥാന നദീജല കരാറുകൾ സംബന്ധിച്ച് ഇരുസംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുടെ യോഗം വൈകിട്ട് തിരുവനന്തപുരത്ത് ചേരും പറമ്പിക്കുളം ആളി യാർ പദ്ധതിയടക്കം അണക്കെട്ടുകളിലെ നദീജലം പങ്കുവയ്ക്കു ന്നതിലെ തർക്കം പരിഹരിക്കാനാണ് ചർച്ച മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി എം എം മണി കെ രാജു ചീഫ് സെക്രട്ടറി ടോംജോസ് മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർ തുട ങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും

പാലാരിവട്ടം മേൽപ്പാലം അഴിമതിക്കേസിൽ പൊതുമരാമത്ത് മുൻ സെക്രട്ടറി ടി

സൂരജിനെ മൂവ്വാറ്റുപുഴ ജയിലിൽ വിജിലൻസ് ചോദ്യം ചെയ്തു വരികയാണ് മുൻമന്ത്രി വി

ഇബ്രാഹിം കുഞ്ഞിനെതിരെ നടത്തിയ പരാമർശങ്ങളുടെ സ്ത്യാവസ്ഥ മന സ്റ്റിലാക്കാനാണ് ചോദ്യം ചെയ്യൽ

ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എൻ പീതാംബരകുറുപ്പിനെ പരിഗണിക്കുന്നതിനെതിരെ പ്രദേശിക കോൺഗ്രസ് പ്രവർത്തകർ കെ പി സി സി ആസ്ഥാനത്തിനു മുന്നിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു മണ്ഡലത്തിൽ നിന്നുതന്നെ ഒരാൾ സ്ഥാനാർത്ഥി യാകണമെന്ന ആവശ്യവും അവർ ഉന്നയിച്ചു എൻ ഡി എയുടെ കുമ്മനം രാജശേഖരനും സിപിഐഎ മ്മിന്റെ വി കൌപ്രശാന്തും സ്ഥാനാർത്ഥികളായാൽ പീതാംബര കുറുപ്പ് പിന്തള്ളപ്പെട്ടുപോകുമെന്ന് കാണിച്ച് അവർ പാർട്ടി നേതൃ ത്വത്തിന് കത്ത് കൈമാറി ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഭാഗ മായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി തിരുവനന്തപുരത്ത് യോഗം ചേരുന്ന പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം സംഘടിപ്പി ച്ചത് ഉച്ചകഴിഞ്ഞ് യു ഡി എഫ് യോഗവും തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്

പാലാ കാർമൽ സ്കൂളിലാണ് വോട്ടെ ണ്ണൽ വെള്ളിയാഴ്ച രാവിലെ എട്ടുമണിക്ക് വോട്ടെണ്ണൽ തുട ങ്ങും കാലാവധി കഴിഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസുകൾ പിഴ കൂടാതെ പുതുക്കി നൽകുന്നത് സംബന്ധിച്ച് ഗതാഗത കമ്മീഷ ണർ ആർ ശ്രീലേഖ ആർ ടി ഒ മാർക്ക് നിർദ്ദേശം നൽകി കാലാ വധി കഴിഞ്ഞ് ഒരു വർഷത്തിനകം ലൈസൻസ് പുതുക്കുന്ന വർക്കാണ് ആനുകൂല്യം എന്നാൽ കാലാവധിയും ഒരു മാസത്തെ ഗ്രേസ് പിരീഡും കഴിഞ്ഞ ലൈസൻസോടെ വാഹനമോടിച്ച് അപ കടം വരുത്തിയാൽ ഇപ്പോഴത്തെ നിയമപ്രകാരം കേസെടുക്കും സർവ്വകലാശാലാ ധനകാര്യ കമ്മീഷനും അഖിലേന്ത്യാ സാങ്കേ തിക വിദ്യാഭ്യാസ കൌൺസിലിനും പകരം ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ കൊണ്ടു വരുന്ന ബിൽ അടുത്തമാസം കേന്ദ്രമന്ത്രിസ ഭയുടെ പരിഗണനയ്ക്ക് നൽകിയേക്കും

ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങളുമായി കേന്ദ്രമാനവ വിഭവ ശേഷി മന്ത്രാലയം ചർച്ച നടത്തിയിരുന്നു ബി ജെ പി നേതാവ് സ്വാമിചിന്മയാനന്ദിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ വിദ്യാർത്ഥിനിയെ വഞ്ചനാ കേസിൽ യു പി പൊലീസ് അറസ്റ്റു ചെയ്തു

വൈദ്യ പരിശോധനയ്ക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പൊലീസ് അറിയിച്ചു

ആറു മാസത്തെ പ്രവർത്തനമാണ് ലക്ഷ്യംവെച്ച തെങ്കിലും കുറച്ചുകാലം കൂടി പേടകം ചൊവ്വയുടെ ഭ്രമണപഥ ത്തിൽ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഐ എസ് ആർ ഒ ചെയർമാൻ ഡോ കെ ശിവൻ ബംഗളൂരുവിൽ പറഞ്ഞു

ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് സൂചന പടിഞ്ഞാ റൻ ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്രാപ്രദേശ് തീരത്തിനടുത്ത് രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് മഴയ്ക്കു കാരണം കൊറിയ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ നിന്ന് പി വി സിന്ധുവും സായ് പ്രണീതും പുറത്തായി സിന്ധു അമേരിക്കൻ താരത്തോടും സായ് പ്രണീത് ഡെൻമാർക്ക് താരത്തോടുമാണ് തോറ്റത് അത്ലറ്റിക്സിന് നൽകിയ സംഭാവനകൾ മാനിച്ച് അത്ലറ്റിക് ഫെഡറേഷനുകളുടെ അന്താരാഷ്ട്ര സംഘടനയായ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത് ലറ്റിക് സ് ഫെഡറേഷൻ നൽകുന്ന വെറ്ററൻ പിൻ പുരസ്കാരം ഒളിംപ്യൻ പി

ദോഹയിൽ നടന്ന ചടങ്ങിൽ ഫെഡറേഷൻ കോൺഗ്രസിൽ വെച്ച് അധ്യക്ഷൻ സെബാസ്റ്റ്യൻ കോയിൽ നിന്നാണ് ഉഷ പുരസ്കാരം ഏറ്റുവാങ്ങിയത്

തർക്കം നിലനിൽക്കുന്ന പിറവം പള്ളിയിൽ ഓർത്തഡോക്സ് വിഭാഗത്തെ യാക്കോബായ വിഭാഗം തടഞ്ഞു സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഓർത്തഡോക്സ് വിഭാഗക്കാർ രാവിലെ പ്രാർത്ഥനക്കെത്തിയത് എന്നാൽ നേരത്തെ പള്ളിയ്ക്ക കത്ത് നിലയുറപ്പിച്ച യാക്കോബായ വിഭാഗം തടഞ്ഞത് സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു പൊലീസ് കന്നത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് അസോസിയേഷൻ ഓഫ് ടൂറിസം ട്രേഡ് ഓർഗനൈസേ ഷൻസ് ഇന്ത്യയുടെ മൂന്നാമത് ടൂറിസം ടെക്നോളജി സമ്മേളനം നാളെ കൊച്ചിയിൽ ആരംഭിക്കും രണ്ടു ദിവസത്തെ സമ്മേളനം നാളെ വൈകിട്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും വലിയ വിമാന സർവ്വീസുകൾക്ക് സൌകര്യമൊരുക്കാൻ കരി പ്പൂരിൽ ടാക്സി ബ്രുനവീകരണ പ്രവൃത്തികൾ അടുത്തമാസം ആരംഭിക്കും

പുണിഞ്ചി ത്തായ അർഹനായി

ഇരു സംസ്ഥാനങ്ങളിലും ആർട്ട് ഗാലറികൾ സ്ഥാപിക്കുന്നതിന് പുണി ഞ്ചിത്തായ മുൻനിരയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്

സ്കൂളുകളിലെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ബി പോസിറ്റീവ് എന്ന പ്പേരിൽ പദ്ധതി നടപ്പാക്കും വിജയം നൂറുശതമാനമാക്കുകയും ഏറ്റവും കുറഞ്ഞ ഗ്രേഡ് ബി പ്ലസ് നിലവാരമാക്കി ഉയർത്തുകയുമാണ് ലക്ഷ്യം

വി സുമേഷ് അറിയിച്ചു കോഴിക്കോട് അത്തോളിയിൽ കോളെജ് ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു

ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോൾ കോളെജ് ബസ്സുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം

സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയുമാണ് വനിതാ ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്